പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ വിവിധ വികസനപ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തൂടക്കം കൂറിച്ചു

സൂപ്രീംകോടതി നിയമിച്ചു എട്ടാഴ്ച്ചയ്ക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം

മിസോറാം ഗവർണർ പദവി കൂമ്മനം രാജശേഖരൻ രാജിവെച്ചു

പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ച് ഇന്ന് വീട് ലഭിച്ചിട്ടില്ലാത്തവർക്ക് നാളെ അത് ഉറപ്പായും ലഭ്യമാക്കുമെന്ന് കാൺപൂരിൽ റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി വ്യക്തമാക്കി

പ്രകാരം ഒരു കോടി അൻപത് ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചു

എവൈ നിർവ്വഹണ രീതിയിൽ വൻപുരോഗതിയു ായതായി പ്രധാനമന്ത്രി പറഞ്ഞും രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും സൌഹാർദ്ദവും തകർക്കാൻ ആർെയും അനുവദിക്കരുതെന്ന് അടുത്തിടെ കാശ്മീരി ജനതയ്ക്ക് നേരെ ഉപായി അതിക്രമങ്ങളെ പരാമർശിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കി ചില ഛിദ്രശക്തികൾ കാശ്മീരികൾക്കെതിരെ ആക്രമണത്തിന് ശ്രമം നടത്തിയെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ സമയോചിതമായ ഇടപെടൽ നിമിത്തം ്അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായതായി പ്രധാനമന്ത്രി പറഞ്ഞു അയൽരാജ്യ് തങ്ങൾക്ക് നേരെ നടത്തിയ ഭീകരാക്രമണത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അപ്ലപിച്ചു കഴിഞ്ഞു എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നിരത്തുന്ന ആരോപണങ്ങളാണ് പാകിസ്താൻ ഇന്ത്യക്കെതിരായി പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്രെന്ന് പ്രധാനമന്ത്രി ചൂ ിക്കാട്ടി

ആഗ്ര മെട്രോ റെയിൽ പദ്ധതിയ്ക്കും ലക്നൌ മെട്രോ റെയിൽ പദ്ധതിയുടെ ര ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തുടക്കമിട്ടു

തുടർന്ന് വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം ശിലാസ്ഥാപനം നടത്തി ഡൽഹി മെട്രോ റെഡ് ലൈനിന്റെ ഭാഗമായ ദിൽഷാദ് ഗാർഡൻ ഷഹീദ് സ്ഥൽ സെക്ഷൻ ഡൽഹി ഘാസിയാബാദ് മീററ്റ് റീജ്യണൽ റാപിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നീ പദ്ധതികൾ ഇതിലുൾപ്പെടും

മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഖലീഫുള്ള അധ്യക്ഷനായ സമിതിയിൽ ആത്മീയ നേതാവ് ശ്രീശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരും അംഗങ്ങളാണ് യുപിയിലെ ഫൈസാബാദിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങണമെന്നും സുപ്രീംകോടതി നിർദേശിച്ചു നാലാഴ്ചയ്ക്കുള്ളിൽ മധ്യസ്ഥ സംഘം ആദ്യ റിപ്പോർട്ട് കോടതിയിൽ നൽകണം ചർച്ചകൾ പൂർത്തിയാക്കാൻ എട്ടാഴ്ച്ച സമയം മധ്യസ്ഥ സമിതിക്ക് അനുവദിച്ചു അതുവരെ മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കു ായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി

രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും വികസനമാണ് തന്റെ ല്ലക്ഷ്യമെന്ന് വെളിവാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസക്തമായ പ്പസംഗങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അഗാധ പാണ്ഡിത്യം തെളിയിക്കുന്നതാണ് പുസ്ത്രമെന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു

എസ് പരിശീലനാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നോട്ട് അസാധുവാക്കൽ വരുമാനം പ്രഖ്യാപിക്കുന്നതിനായി കൊ ുവന്ന നീക്കം ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച നിരോധന നിയമം തുടങ്ങിയവ സമ്പദ് വൃവസ്ഥയിൽ സുതാരൃത കൊ ുവന്നതായി രാഷ്ട്രപതി പറഞ്ഞു ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന രാജ്യമെന്നനിലയ്ക്ക് വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ ജിഡിപി ഇരട്ടിയാകുമെന്നും ഇത് കൂടുതൽ അവസരങ്ങൾ കൊ ുവരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു

മുതിർന്ന നേതാവ് മുലായംസിംഗ് യാദവ് ഉൾപ്പെടെ ആറുപേരാണ് ആദ്യപട്ടികയിൽ ഇടംപിടിച്ചത് മുലായംസിംഗ് യാദവ് മെയിൻപുരിയിൽ നിന്ന് ജനവിധി തേടും പാർട്ടി എം

ആയി ധർമ്മേന്ദ്ര യാദവ് ഭൂട്ടാൻ സീറ്റിൽ വീ ും മത്സരിക്കും

ഇതോടെ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം ര ായി

സംഭവത്തിൽ പ്രവർത്തിച്ചെന്ന് കരുതുന്ന ഒരാളെ മണിക്കുറുകൾക്കകം തന്നെ പോലീസ് അറസ്സു ചെയ്തിരുന്നു ഹിസ്ബുൾ മുജാഹിദീനാണ് ആക്രമണം നടത്താൻ തന്നെ ചുമതലപ്പെടുത്തിയതെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ വെളിപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു

ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന പ്പാണ്ഡ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബിജെപിയിൽ ചേർന്നത്

രാജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിച്ചതായി രാഷ്ട്രപതിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

കേന്ദ്ര നേതൃത്വം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും മിസോറാമിലെ ചില തിരക്കുകൾ കാരണം വൈകുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കുമ്മനത്തിന്റെ തിരിച്ച് വരവ് കേരളത്തിലെ ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്നും ് തിരുവനന്തപുരം മണ്ഡലത്തിന് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹമെന്നും ബിജെപി എം പി വി മുരളീധരൻ ദില്ലിയിൽ പറഞ്ഞു

അലിബാഗിലെ വിവാദ മന്ദിരം നിയന്ത്രിത സ്ഫോടനം ഉപയോഗിച്ചാണ് പൊളിച്ചുമാറ്റിയതെന്നും റേയ്ഗഡ് ജില്ലാ കളക്ടർ വിജയ് സൂര്യവാൻഷി അറിയിച്ചു

പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബിക്കാനീറിലെ നാൽ വ്യോമത്താവളത്തിൽ നിന്നും പതിവ് പരീക്ഷണ പറക്കലിന് പുറപ്പെട്ട വിമാനമാണ് തകർന്നത് സംഭവത്തെ കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ആഭ്യന്തരമന്ത്രാലയ വക്താവ് അറിയിച്ചു

സാമൂഹികക്ഷേമത്തിനും സ്ത്രീശാക്തീകരണത്തിനും വേ ി പ്രവർത്തിച്ച വനിതകൾക്കും സ്ഥാപനങ്ങൾക്കും വനിത ശിശുക്ഷേമ മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് നാരിശക്തി പുരസ്കാരം

വനിതാദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വരണാസിയിൽ ദീൻദയാൽ ഹസ്തകലാ സങ്കുലിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്തു വിശദാംശങ്ങളുമായി സുവർണ

സമൂഹത്തിനും രാജ്യത്തിനും പരിവർത്തനം ഉറപ്പാക്കാൻ സ്ത്രീകൾക്ക് ശക്തിയു പ്രതിരോധംകൃഷിആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സ്തുതൃഹർമായ സേവനങ്ങളാണ് സ്ത്രീസമൂഹം കാഴ്ചവെച്ചിട്ടുള്ളത് കുടുംബങ്ങളുടെ ക്ഷേമത്തിനുപുറമേ സമൂഹത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് അൻപത് ലക്ഷത്തിലേറെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി ആറുകോടിയിലേറെ വനിതകൾ സ്വയം പര്യാപ്തതയുടെ ് പാതയിലെത്തിയതായി പ്രധാനമന്ത്രി ചൂ ിക്കാട്ടി വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വനിതാദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂഡൽഹിയിൽ സ്ത്രീകളുടെ നൈപുണ്യശേഷി വികസനം വഴി സുസ്ഥിര ജീവനോപാധി ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യം വെയ്ക്കുന്ന പരിശീലനത്തിന്റെ ധാരണാപത്രത്തിൽ വനിതാശിശു ക്ഷേമ മന്ത്രാലയവും നൈപുണ്യ വികസനശേഷി മന്ത്രാലയവും ഒപ്പുവെച്ചു

നൈപുണ്യശേഷി വികസിപ്പിക്കുകവഴി സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് ശ്രീമതി മനേകാ ഗാന്ധി പറഞ്ഞു രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കാൻ സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിനും കുഴിയുമെന്ന് ശ്രീ ധർമ്മേന്ദ്രപ്രധാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് സെഞ്ചറി നേടിയ ഉസ്മാൻ ഖാജ എന്നിവരുടെ മികച്ച പ്രകടനമാണ് ഓസ്ട്രേലിയയ്ക്ക് കൂറ്റൻ സ്കോർ നേടികൊടുത്തത് ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി

എട്ടാം സീഡ് താരം സൈന ര ് തവണ ചാമ്പ്യനായിരുന്ന തായ്പെയ് യുടെ തായ്സൂയിങ്ങിനോടാണ് പരാജയപ്പെട്ടത്